തോമസ് ഐസക് ദുരിതബാധിതരുടെ കൃത്യമായ കണക്ക് തയ്യാറാക്കി അർഹ രായവരെ റവന്യൂവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തുമെന്ന് അഡീ ഷണൽ ചീഫ് സെക്രട്ടറി പി എച്ച് കുര്യൻ അറിയിച്ചു

സംസ്ഥാനത്ത് പനി ബാധിച്ച് ഇന്ന് മൂന്നുപേർ മരിച്ചു

ഇന്ധനവിലയിൽ വീണ്ടും വർധന

തോമസ് ഐസക് അറിയിച്ചു ഇതിന് നടപടി പുരോഗമിക്കുകയാനണെന്ന് അദ്ദേഹം ആലപ്പുഴ യിൽ പറഞ്ഞു ഒട്ടേറ പേരുടെ ബാങ്ക് അക്കൌണ്ടിൽ തുക ലഭ്യമാ ക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു ദുരിതാശ്വാസ തുക അർഹരായവർക്ക് തന്നെയാണ് ലഭിക്കു ന്നതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പി

ദുരിതബാധിതരുടെ കൃത്യമായ കണക്ക് തയ്യാറാക്കി അർഹരായവരെ റവന്യൂ വകുപ്പ് ഉദ്യോഗ സ്ഥർ കണ്ടെത്തുമെന്ന് അദ്ദേഹം കൊച്ചിയിൽ അറിയിച്ചു ഇവ രുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കോ ട്രഷറി അക്കൌണ്ടുകളി ലേക്കോ തുക കൈമാറുമെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടുദിവസം വീട്ടിൽവെള്ളം കയറി വീട്ടുപകരണം നഷ്ടമായവർക്കാണ് പണം നൽകുന്നതെന്നും ദുരന്തനിവാരണ നിയമപ്രകാരം അർഹതയുള്ള വർക്കാണ് തുക നൽകുകയെന്നും പി എച്ച് കുര്യൻ വ്യക്തമാ ക്കി

ഇത് പരിശോധിച്ച ശേഷം തഹസിൽദാറാണ് തുക നൽകുക അതു കൊണ്ടാണ് ചെറിയ കാലതാമസം ഉണ്ടാകുന്നതെന്നും അഡീഷ ണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞു പ്രളയദുരിതമനുഭവിക്കുന്ന ക്ഷീര കർഷകർക്ക് ഒരു കൈത്താങ്ങ് പദ്ധതി പ്രകാരം പൊതുമേഖലാ സ്ഥാപനമായ കേരളഫീഡ്സ് കാലിത്തീറ്റ വിലകുറച്ചു

പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകളും തൃശൂർ ജില്ലകളിലാണ് വില കുറച്ച് വിൽക്കുന്നത് ഇവിടങ്ങളിൽ കാലിത്തീറ്റയും ധാതു ലവണങ്ങളും കർഷകർക്ക് നൽകിയിരുന്നു പ്രളയാനന്തര നവകേരള നിർമ്മിതിയ്ക്ക് അടിയന്തരമായി ആറായിരം കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് കണ്ടെത്തണ മെന്ന് മന്ത്രി ഡോ

ദുരിതാശ്ചാസ നിധി യിലെ ഒരു പൈസപോലും വകമാറ്റി ചെലവഴിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന നവകേരള ഭാഗ്യക്കുറി ടിക്കറ്റ് ആലപ്പുഴയിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

മന്ത്രി പി തിലോത്ത മൻ ആദ്യ ടിക്കറ്റ് വിൽപ്പന നിർവഹിച്ചു മന്ത്രി ജി സുധാകരൻ മറ്റു ജനപ്രതിനിധികൾഎന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു

ഈ തുക പൂർണ്ണ മായും ദുരിതാശ്ചാസ പുനർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിനി യോഗിക്കും

ഒക്ടോബർ മൂന്നി നാണ് നറുക്കെടുപ്പ് നദികളുടെ ഇരുകരകളിലും ജലാശയങ്ങളുടെയും തോടുക ളുടെയും പ്രളയപരിധിയിലുമുള്ള നിർമ്മിതികൾക്ക് കർശന നിയ ന്ത്രണം വേണമെന്ന് സംസ്ഥാനപരിസ്ഥിതി കാലാവസ്ഥാ ഡയറ ക്ടറേറ്റ് ശുപാർശ ചെയ്തു സംസ്ഥാന ആസൂത്രണബോർഡിന് നൽകിയ ശുപാർശകളിലാണ് പരിസ്ഥിതി വീണ്ടെടുക്കുന്നതിന് നിർദേശങ്ങൾ ഡയറക്ടറേറ്റ് നൽകിയത് റിവർ മാനേജ്മെന്റ് സെല്ലിന്റെ ഭാഗമായി റവന്യു വകുപ്പിന്റെ കൈവശമുള്ള രേഖകൾ കൂടി പ്രയോജനപ്പെടുത്തിയാൽ പ്രളയ മേഖലകൾ അടയാളപ്പെടുത്താനാകുമെന്നും പ്രളയജലമെത്തുന്ന സ്ഥലങ്ങളിൽ നിലവിലെ എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധ ഇൻഷൂറൻസ് എടുക്കണമെന്നും ശുപാർശയിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ എലിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മന്ത്രി കെ

ഉച്ചകഴിഞ്ഞ് മൂന്നിന് കലക്ട്രേറ്റ് കോൺഫ റൻസ് ഹാളിലാണ് യോഗം എലിപ്പനി ബാധിക്കാതിരിക്കാൻ ആരോഗ്യപ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ടവരും വീട് വൃത്തിയാക്കാൻ പോയ വരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ പറഞ്ഞു ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും എലിപ്പനിയുടെ പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്കിൻ കഴി ക്കണമെന്നും അദ്ദേഹം ഫെയ്സ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സന്ന ദ്ധപ്രവർത്തകർക്ക് മാത്രമായി ആശു പത്രികളിൽ പ്രത്യേക കൌണ്ടർ വഴി പ്രതിരോധ ഗുളികകൾ ലഭ്യമാക്കുമെന്നും മുഖ്യ മന്ത്രി അറിയിച്ചു രോഗം മൂർച്ഛിച്ച പലർക്കും പെൻസിലിൻ ചികിത്സ ആവശ്യമായി വരുമെന്നും താലൂക്കാശുപത്രി മുതൽ എല്ലാ ആശുപത്രികളിലും ഇതിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടു ണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

പ്രതിരോധ മരുന്ന് കഴിക്കാത്തതാണ് എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം കൂടാൻ കാരണമെന്ന് മന്ത്രി കണ്ണൂരിൽ പറ ഞ്ഞു മരുന്ന് കഴിക്കാൻ പലരും വിമുഖത കാണിക്കുന്നുണ്ട് ആശ ങ്കപ്പെടേണ്ട സാഹര്യമില്ലെന്നും മന്ത്രി വൃക്തമാക്കി എല്ലാ ആശുപത്രികളിലും പ്രതിരോധ മരുന്ന് ലഭ്യമാണെന്നും മന്ത്രി പറ ഞ്ഞു സംസ്ഥാനത്ത് ഇന്ന് പനി ബാധിച്ച് മൂന്നു പേർ മരിച്ചു കോഴിക്കോട്ട് രണ്ടുപേരും പത്തനംതിട്ടയിൽ ഒരാളുമാണ് മരിച്ചത് എരഞ്ഞിക്കൽ സ്വദേശി അനിൽകുമാറും വടകര സ്വദേശി നാരായണിയുമാണ് കോഴിക്കോട്ട് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളജിൽ ചികിത്സയിലായിരുന്ന ചെറു കോൽപുഴ സ്വദേശി രഞ്ജുവാണ് പത്തനംതിട്ടയിൽ മരിച്ചത് എലിപ്പനി പടരുന്ന സാഹചര്യത്തിൽ മൊബൈൽ മെഡിക്കൽ ടീം നേതൃത്വത്തിൽ കോഴിക്കോട് കോർപറേഷൻ കേന്ദ്രീകരിച്ച് ഇന്ന് മൊബൈൽ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്കിൻ വിതരണവും നടത്തും എരഞ്ഞിക്കൽ കല്ലാ യ് കണ്ണാടിക്കൽ എരഞ്ഞിപ്പാലം ബേപ്പൂർ എന്നിവിടങ്ങളിൽ ഉച്ച കഴിഞ്ഞ് രണ്ടുമുതൽ അഞ്ചുവരെയാണ് കൃാമ്പുകൾ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്ന് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ കരട് വിജ്ഞാപനത്തിന് കേന്ദ്ര പരിസ്ഥി മന്ത്രാലയം അംഗീകാരം നൽകി

കേരളം ആവശ്യപ്പെട്ട മാറ്റങ്ങൾ അതേപടി ഉൾപെടുത്തിയിട്ടുണ്ട്

കസ്തൂരി രംഗൻ ശുപാർശകൾ അതേപടി നടപ്പാക്കാ നാകില്ലെന്ന് പരിസ്ഥിതി മന്ത്രാലയം വൃക്തമാക്കി സംസ്ഥാന ങ്ങളിലെ സാഹചര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ടെന്നും ഇക്കാര്യം ദേശീയ ഹരിത്രൈ ടബ്യൂണലിനെ അറിയിക്കുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു ഇതിനായി പരിസ്ഥിതി മന്ത്രാലയം നിയമ മന്ത്രാലയത്തിന്റെ ഉപദേശം തേടിയിട്ടുണ്ട് അർഹതയുണ്ടായിട്ടും ക്ഷേമപെൻഷൻ പട്ടികയിൽ നിന്ന് പുറ ത്തായവരെ പരാതി നൽകാതെ തന്നെ തദ്ദേശസ്ഥാപനങ്ങൾ സ്വയം തെറ്റ് തിരുത്തി പട്ടികയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു ക്ഷേമപെൻഷൻ പദ്ധതിയിൽ നിന്നും അർഹതയുണ്ടായിട്ടും പുറത്താക്കപ്പെട്ടവരുടെ തദ്ദേശസ്ഥാപന ങ്ങൾ തിരിച്ചുള്ള പട്ടികതയ്യാറാക്കാൻ നിർദേശം നൽകിയതായും മന്ത്രി സ്വകാര്യ ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞു ഇന്ധനവിലയിൽ വീണ്ടും വർധന

രാജ്യാന്തര വിപണിയിൽ എണ്ണ വില ഉയരുന്നതോടൊപ്പം രൂപയുടെ മൂല്യം ഇടിയുന്നതാണ് വില വർധനയ്ക്ക് കാരണം കാലിക്കറ്റ് സർവകലാശാലയ്ക്കു കീഴിലെ കോളേജുകളിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്

കഴിഞ്ഞ മാസം നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് മഴക്കെടുതി മൂലം മാറ്റി വയ്ക്കുകയായിരുന്നു കനത്ത മഴയെ തുടർന്ന് തകർന്ന അട്ടപ്പാടി ചുരം വഴിയുള്ള വലിയ വാഹനങ്ങളുടെ ഗതാഗതം പുനഃ സ്ഥാപിച്ചു കെഎസ്ആർടിസി അടക്കം സർവീസുകൾ ആരംഭിച്ചു ചുരം റോഡിൽ വ്യാപകമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു

ജെ പി യാണ് രണ്ടാംസ്ഥാനത്ത്

ടൌൺപഞ്ചായത്തുക ളിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തുമ്പോൾ കോർപ്പറേഷനുകളിൽ ബി

വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ് കന്യാസ്ത്രീ നൽകിയ പരാതിയിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അന്വേഷണസംഘം വീണ്ടും ചോദ്യം ചെയ്തേ ക്കും ഇതിനായി ബിഷപ്പിനെ നോട്ടീസ് നൽകി വിളിച്ചുവരുത്തും ബിഷപ്പിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും ചോദ്യം ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗ സ്ഥനായ ഡി

ബിഷപ്പിന്റെ അറസ്റ്റ് സംബന്ധിച്ച് ഉടൻ തീരു മാനമുണ്ടാകുമെന്നാണ് സൂചന പ്രളയദുരിതത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊ ഴിലാളികളെ ഇന്ന് കോഴിക്കോട്ട് ആദരിക്കും വൈകിട്ട് നാലിന് നടക്കുന്ന സ്നേഹാദരം ചടങ്ങിൽ മന്ത്രിമാരായ ടി പി രാമകൃ ഷ്ണൻ എ

ശശീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും കോഴിക്കോട് ഫറോക്ക് മേഖലയിലെ സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ ഓട്ടം പ്രളയബാധിതരെ സഹായിക്കുന്നതിന് മുഴുവൻ ബസ്സുകളിലെയും ഇന്നത്തെ കലക്ഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാ ശ്വാസനിധിയിലേക്ക് നൽകുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോ സിയേഷൻ ഭാരവാഹികൾ ഫറോക്കിൽ അറിയിച്ചു പ്രളയ ബാധിതർക്ക് വിതരണം ചെയ്യാൻ അധിക വിഹിതമായി നൽകുന്ന മണ്ണെണ്ണയും അരിയും കൂടിയ വില ഈടാക്കാതെ സബ്സിഡി നിരക്കിൽ നൽകാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവ ണമെന്ന് ഓൾ ഇന്ത്യ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ബേബിച്ചൻ മുക്കാടൻ പത്തനംതിട്ടയിൽ ആവ ശ്യപ്പെട്ടു പ്രളയ കാലത്ത് കേരളത്തിന് നൽകിയ അധിക അരിയുടെ വില കേന്ദ്ര ദുരിതാശ്ചാസ നിധിയിൽനിന്നും ഈടാക്കുമെന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രസ്താവന പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു